വീണ്ടും ഒരു ലക്ഷം കടന്നു നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് സംസ്ഥാനങ്ങൾ കേരളത്തിലും രോഗവ്യാപന്ന് സ് വർദ്ധിച്ചു

വിജയന്റെയും മുറ്റും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ആരോഗ്യനില തൃപ്തികരം

ആർ പരിശോധനയും ഊർജ്ജിതമാക്കി പന്ത്രണ്ടാം ക്ലാസ് യോഗൃതയുള്ളവരുടെ പി

പൊതു പ്രാഥമിക പരീക്ഷയുടെ ആദൃഘട്ടം നാളെ നാല് ലക്ഷത്തിലേറെ പേർ പരീക്ഷ എഴുതും

മറ്റ് സംസ്ഥാനങ്ങളിലെ അതിതീവ്ര വ്യാപനവും നിയമസഭാ തെരിക്കൂഞ്ഞടുപ്പ് കഴിഞ്ഞതും കണക്കിലെടുത്താണ് നടപടി

ആദ്യ തരംഗത്തിലേതുപോലെ രോഗവൃദ്ധിപ്നം തീവ്രമാകില്ലെന്നാണ് വിലയിരുത്തൽ

തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്നവർ ആർടി പി

ആർ ടെസ്റ്റിന് വിധേയരാകണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് മാസ്കും ശാരീരിക അകലവും കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പൊലീസ് പരിശോധന ഊർജിതമാക്കി മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വൃാപാര സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനാണ് നിർദ്ദേശം വിദേശത്തുനിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരുടെ കാര്യത്തിൽ നേരത്തേയുള്ള കോവിഡ് മാനദണ്ഡത്തിൽ മാറ്റമില്ലെന്ന് സർക്കാർ വൃക്തമാക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഒരാഴ്ച കാറന്റൈനിൽ കഴിയണം

ഏഴു ദിവസത്തിനകം മടങ്ങിപ്പോകുന്നവർക്ക് കാറന്റൈൻ വേണ്ട

സർക്കാർ നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ദേവസ്വങ്ങൾ ഇക്കാരൃത്തിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാരൃം പരിഗണിക്കും

ഇരിട്ടി ചെക്ക് പോസ്റ്റ് പേരാവൂർ താലൂക്കാശുപത്രി ഗവ എൽ പി സ്കൂൾ വലിയപാറ എഫ് എൽ ടി സി ഉമ്മറപ്പൊയിൽ മലപ്പട്ടം കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് സൌജനൃ കൊവിഡ് പരിശോധനയ്ക്ക് സൌകര്യമൊരുക്കിയിരിക്കുന്നത്

സി

പ്രതിദിന ്ആർ

സി

സ്വകാര്യ സ്ഥാപനങ്ങൾ മാളുകൾ സ്ട്രീറ്റുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നർ ഓട്ടോടാക്സി ഡ്രൈവർമാർ ഹോട്ടൽ തൊഴിലാളികൾ സ്കൂൾ കോളജ് അധ്യാപകർ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുത്തവർ എന്നിവരിൽ കൂടുതലായി കോവിഡ് പരിശോധന നടത്തും

എസ് ആർട്ടിസി ബാങ്ക് ജീവനക്കാർ ഓട്ടോ ടാക്സി തൊഴില്ലൂട്ളി്കൾ വ്യാപാര മേഖലകളിലെ തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ വേഗം വാക്സിൻ സ്വീകരിക്കണം

അടുത്ത ദിവസങ്ങളിലായി ദൈനംദിന രോഗബാധിതരുടെ എണ്ണം നൂറിന് മുകളിൽ എത്തിയിട്ടുണ്ട്

തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരും ഉദ്യോഗസ്ഥരും കോവിഡ് ടെസ്റ്റ് നടത്തി രോഗം ബാധിച്ചിട്ടില്ലെന്ന് ഉറപ്പു വരുത്തണം

മധ്യപ്രദേശിൽ എല്ലാ നഗരങ്ങളിലും ഇന്നുമുതൽ തിങ്കളാഴ്ച വരെ ലോക്ട്ഡ്ജ്ൺ ഏർപ്പെടുത്തി

സി പരീക്ഷ പന്ത്രണ്ടാം ക്ലാസ്സ് വരെ അടിസ്ഥാന യോഗൃതയുള്ള വിവിധ തസ്തികകളിലേക്കുള്ള പി എസ് സി പൊതു പ്രാഥമിക പരീക്ഷയുടെ ആദ്യഘട്ടം നാളെ

ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് പി എസ് സി വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്തെടുക്കാം

പരീക്ഷാ ഹാളിൽ മൊബൈൽ ഫോൺ വാച്ച് മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അനുവദനീയമല്ല

ക്ടോഴിക്കോട് കുവൈറ്റ് എക്സ്പ്രസ് ഐ

യാത്രക്കാർ ഉൾപ്പെടെ എല്ലാവരും സുരക്ഷ്മീതരാണ്

തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് രാഷ്ട്രീയ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു ബാലുശ്ശേരി പോലീസ് സംഭവസ്ഥലം സന്ദർശിച്ചു

ദിവസവും വെർച്ചൽ ക്യൂ വഴി ബുക്ക് ചെയ്തെത്തുന്ന പതിനായിരം പേർക്കാണ് ദർശന അനുമതി

സ്വർണ്ണവിലയിൽ വീണ്ടും വർദ്ധന